മിഷൻ പുരോഗമിക്കൂന്നു കുവൈറ്റ് മസ്കറ്റ് എന്നിവിടങ്ങളിൽ ന്ദിന്നും ഇന്നലെ കൊച്ചിയിൽ വിമാനങ്ങളെത്തി ഇസ്കൂടുതൽ പേർ നാട്ടിലെത്തും

ലോക്ക്ഡൌൺ പൂർണമായി പാലിക്കണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ

നിരക്ക് പത്തിൽ നിന്നും ഏഴായി കുറഞ്ഞു

ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ മദ്ധ്യപ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രസംഘമെത്തുക സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകൾ നടത്തിവരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് നടപടി ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുജനാരോഗൃ ക്രവിദഗ്ധരുമടങ്ങുന്നതാണ് സംഘം

വന്ദേഭാരത് ദൌതൃത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഫ്ളൈറ്റുകൾ ഏർപ്പെടുത്തുകയാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി പി

പരിശോധനകൾക്ക് വിധേയരാക്കി ഇവരെ ക്വാറന്റൈൻ സെന്ററുകളിൽ എത്തിച്ചു കോലാലംപൂരിൽ നിന്ന് പ്രവാസികളെ മടക്കിയെത്തിച്ച വിമാനം പറത്തിയത് കവിത രാജ്കുമാറിന്റെ നേതൃത്യത്തിലാണ്

ഏറ്റവും കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങിയത് അമേരിക്കയിലാണ്

മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ ഏറെയുള്ളത്

വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾ എത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വേണ്ട സൌകരൃം ഒരുക്കാൻ എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്

സർക്കാർ കെയർ സെന്ററുകളി ലും വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ആരോഗൃ പ്രവർത്തകർ നിരന്തരം ബന്ധപ്പെടും

ടെലി മെഡിസിൻ സേവനവും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

് അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെ യ്യേണ്ടി വന്നാൽ ജില്ലാ അധികാരികളിൽ നിന്നോ പോലീസിൽ നി ന്ന് പാസ് വാങ്ങണം മാധ്യമങ്ങൾക്കും വിവാഹ മരണ ചടങ്ങുകൾക്കും നിയന്ത്രണം ബാധകമല്ല

അമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞുങ്ങളാണെന്നും കേരളത്തിൽ ശിശുമരണ നിരക്ക് പത്തിൽ നിന്നും ഏഴായി കുറയ്ക്കാനായത് നേട്ടമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജ യൻ പറഞ്ഞു

അപ്പോഴും ഏഴു കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതു സങ്കടകരമാണ്

ശേഷിക്കുന്ന ബോർഡ് പരീക്ഷകൾ കൂടി നടത്തിയ ശേഷം പരീക്ഷാ്ഫല്പ്രഖ്യാപനം നടത്തുമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മുന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് അറിയിച്ചു

ഇതിന്റെ വിശദാംശങ്ങൾ വൈറോളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഭാരത് ബയോടെക്കിന് കൈമാറി

ജമ്മു കാശ്മീർ ലഡാക്ക് വടക്ക് കിഴക്കൻ ദ്വീപ് മേഖലകൾ എന്നിവിടങ്ങളിൽ ഹെലികോപ്റ്റർ സർവ്വീസും നടത്തിയിരുന്നു

ഒരാഴ്ച ഫാക്ടറികൾ ടെസ്റ്റ് റൺ നടത്തണം

അപകടകരമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പരിഹരിക്കണം